രാജ്യത്തെ മുക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു

അമിത്ഷാ തുടക്കം ്കുപിച്ചു

പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും

ഇന്ന് റഷ്യയിൽ തുടക്കം

പരിസ്ഥിതിയ്ക്ക് കടുത്ത ഭീഷണിയാണ് പ്ലാസ്റ്റിക്കെന്നും അതിനെ ഉന്മൂലം ചെയ്യാനുള്ള ലക്ഷ്യം കൈവരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

ഇതൊരു നാഴിക കല്ലാണെന്നും ഈ മുന്നേറ്റം തുടരണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇരുപതിനായിരത്തോളം ഗ്രാമത്തലവന്മാർ സമ്മേളനത്തിൽ പങ്കെടുത്തു ജലസംരക്ഷണ ഷ്ട്രവർത്തനത്തിനുള്ള ജൽജീവൻ മിഷനിൽ മൂന്ന് ലക്ഷം കോടി രൂപ്പിച്ചെലവിടാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതായി പ്രധാനമന്ത്രി വ്യക്തമാക്ക്ലീ ലോകവേദിയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉയർത്തപ്പെടുകയാണെന്നും ഏൂസ്റ്റുണ്ടിലെ ഹൌഡി മോഡി പരിപാടിയിൽ ഇത് ദൃശ്യമായെന്നും ആദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവരെ ലോകം ബഹുമാനത്തോടെ കാണുകയാണ് സബർമതി ആശ്രമത്തിൽ മഹാർമ്ഗാർഡിക്ക് പ്രധാനമന്ത്രി സ്മരണാഞ്ജലി അർപ്പിച്ചു

ശുചിത്വവും ആരോഗ്യവും ഒരുമിച്ച് നടപ്പാക്കാനുദ്ദേശിക്കുന്ന ഇരട്ട സംരംഭമാണ് ഇത്

ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ കേന്ദ്ര കായികവകുപ്പ് മന്ത്രി കിരൺ റിജിജു ഫിറ്റ് ഇന്ത്യ പ്ലോഗ് റണ്ണിന് തുടക്കം കുറിച്ചു ഫിറ്റ് ഇന്ത്യയേയും സ്വച്ഛ് ഭാരത് അഭിയാനെയും ലയിപ്പിച്ചതായി ശ്രീ

റോഡിൽ നിക്ഷേപിക്കപ്പെട്ട പ്ലാസ്റ്റിക്കും മറ്റ് മാലിന്യങ്ങളും നീക്കം ചെയ്ത് ചണസഞ്ചിയിൽ ആക്കുകയും പിന്നീട് വലിയ ചവർ ബിന്നുകളിൽ നിക്ഷേപിക്കുകയും ചെയ്തു

ഫിറ്റ് ഇന്ത്യ സംരംഭത്തിന് വിഭവങ്ങൾക്ക് പകരം പ്രതിജ്ഞാബദ്ധതയാണ് ആവശ്യമെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ കായികമേഖലയുടെ ഗുണനിലവാരം ഉയർത്തുന്നതിൽ ഫിറ്റ്ഇന്ത്യ സംരംഭം രാസത്വരകമായി വർത്തിക്കുമെന്നും ജനങ്ങൾക്ക് ഫിറ്റ് ഇന്ത്യ പ്രയോജനകരമാണെന്നും രാധേ ശ്യാംജുലനിയ പറഞ്ഞു

ഗോൾഡ് ചാനലിൽ പ്രക്ഷേപണം ചെയ്യും

കേന്ദ്രമന്ത്രിമാരായ പ്രകാശ് ജാവദേക്കർ ധർമ്മേന്ദ്രിപ്പ്ര്യാൻ പ്രഹ്ലാദ് സിങ് എന്നിവർ ചേർന്നാണ് ഡൽഹിയിൽ പദ്ധത്തി ഉത്ഘാടനം ചെയ്തത്

ബ്ലോക്ക് വികസന കൌൺസിലുകളിലേക്ക് നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സംസ്ഥാന ഭരണകൂടം ഇവരെ മോചിപ്പിച്ചത് കഴിഞ്ഞ ആഗസ്റ്റ് അഞ്ച് മുതൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് എൻ

തുടങ്ങിയ വിവിധ കക്ഷികളിൽപ്പെട്ട നേതാക്കൾ വീട്ടുതടങ്കലിലായിരുന്നു

കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ്ഗോയലാണ് ന്യൂഡൽഹിയിൽ ശുചിത്വ പരിശോധനാ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്

തമിഴ്നാട്ടിലെ ട്രിച്ചി റെയിൽവേ സ്റ്റേഷന് ഐ എസ് ഒ

ദേശീയ ഹരിത ട്രൈബ്യൂണൽ ചട്ടങ്ങൾ പാലിച്ച് പരിസ്ഥിതി സൌഹൃദ നടപടികൾ എടുത്തതിനാണ് അംഗീകാരം

അടുത്ത രണ്ട് ദീവസത്തേക്ക് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രിറ്റ്ന ്ഭരണകൂടം അവധി പ്രഖ്യാപിച്ചു പുൻപുൻ ഗംഗ സോനെ ബാഗ്മിയി കോസി നദികളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്ട്

പാറ്റ്നയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വച്ച് ഏറ്റവും രൂക്ഷമായ വെള്ളക്കെട്ടിൽ മൂന്ന് ലക്ഷത്തിലധികം പേർ ദുരിതത്തിലാണ് ഏഴായിരത്തോളം ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു

ചീഫ് സെക്രട്ടറി രഞ്ജിത്ത് സിൻഹയുടെ അധ്യക്ഷതയിലുള്ള സമിതി ജില്ലയിലെ സ്ഥിതിഗതി വീഡിയോകോൺഫറൻസിങ്ങിലൂടെ വിലയിരുത്തി ഏത് പ്രതിസന്ധികളെയും മറികടക്കാനുള്ള അടിയന്തിര നടപടികൾ കൈക്കൊള്ളാൻ ജില്ലാ ഭരണകൂടത്തിന് സംസ്ഥാന ഗവൺമെന്റ് അനുമതി നൽകി ദാമോദർ അണക്കെട്ടിൽ നിന്നുമുള്ള കനത്ത നീരൊഴുക്കിനെ തുടർന്ന് മാൽഡ മുർഷിദാബാദ് ഹൌറ ഹൂഗ്ലി ജില്ലകളിൽ പ്രളയസമാന സാഹചര്യമാണ് നിലനിൽക്കുന്നത്

ഡൽഹി വാരണാസി പാതയിലാണ് ആദ്യ വന്ദേഭാരത് എക്സ്പ്രസ് ഓടുന്നത്

അന്ത്രീര്യാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ചാണ് സാമൂഹ്യന്റീതി മുന്ത്രാലയം ഏർപ്പെടുത്തിയ വയോശ്രേഷ്ഠ പുരസ്ക്കാരങ്ങൾ സ്മ്മൂനിക്കുന്നത്

ഗവൺമെന്റ് അനുവദിച്ച സമയപരിധി അവസാനിക്കുന്നതോടെ താൽക്കാലികമായി പുനഃസ്ഥാപിച്ച വെള്ളവും വൈദ്യുതിയും വിച്ഛേദിക്കും

നിയന്ത്രിത സ്ഫോടന ത്തിലൂടെ ഫ്ളാറ്റുകൾ പൊളിക്കാനുള്ള നഗരസഭാ നീക്കത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു

സമരത്തിന് പിൻതുണ പ്രഖ്യാപിച്ച് വയനാട് എം

ഇന്ന് രാത്രി കോഴിക്കോട്ടെത്തുന്ന ശ്രീ

പത്രികകളുടെ സൂക്ഷ്മപരിശോധന കഴിഞ്ഞതോടെ മണ്ഡലങ്ങളിലെ മത്സരചിത്രം കൂടുതൽ തെളിഞ്ഞു

വോട്ടെടുപ്പ് സുതാര്യവും സ്പുതന്ത്രവും നീതിയുക്തവുമാക്കാൻ വെബ്കാസ്റ്റിംഗ് സുംപ്പിക്ക്ന്ം ഏർപ്പെടുത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാര് മീണ് ആകാശവാണിയോട് പറഞ്ഞു

ഇന്ത്യയിൽ നിന്ന് പത്തംഗസംഘമാണ് വിവിധ വിഭാഗങ്ങളിലായി മത്സരത്തിന് ഇറങ്ങുന്നത് ആറുവട്ടം ലോക ചാമ്പ്യനായ എം

സരിതാദേവിയുടെ പ്രകടനവും ഇന്ത്യ ഉറ്റുനോക്കുകയാണ്

യൂണിവേഴ്സിറ്റിയിലും പരിസരത്തും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്

ന്യൂഡൽഹിയിലെ ഇന്ത്യാഗേറ്റിൽ പര്യടൻ പർവ്വ് ടൂറിസം ഫെയർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

പാലസ്റ്റീൻ വാർത്തവിതരണ മന്ത്രി ഇഷാക്സെദർ രാമള്ളയിൽ ഇന്നലെ നടന്ന ചടങ്ങിലാണ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഇന്ത്യൻ പ്രതിനിധി പി

സ്മൂനിൽകുമാർ ചടങ്ങിൽ പങ്കെടുത്തു